നിന്നും രാജ്യം കരകയറുകയാണെന്ന് വിദേശകാരൃമന്ത്രി എസ് ജയശങ്കർ

ചെറുകിട ഇടത്തരം വൃപ്പസ്നായങ്ങൾ എന്നീ മേഖലകളിലെ വികസനത്തിനു പ്രാധ്യാന്യും നൽകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് മന്ത്രി ഗിത്രീരാജ് സിങ്

ഇന്ത്യയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാംദിനം ഇംഗ്ലണ്ടിന് കൂറ്റൻ സ്കോർ

ആന്ധ്രപ്രദേശിലെ വിജയവാഡയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എന്നാൽ പ്രധാനമന്ത്രി ഗോവയുടെ വികസനത്തിനായി മുന്നൂറു കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഗ്രാമീണർ പാവപ്പെട്ടവർ യുവജനങ്ങൾ വനിതകൾ മുതിർന്ന പൌരന്മാർ എന്നിവർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ് ഇക്കൊല്ലത്തെ ബജറ്റെന്നും ശ്രീ ഗിരിരാജ് സിങ് പറഞ്ഞു

രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇത് കൂടുതൽ വിവരങ്ങളുമായി അശ്വതി

സംഘടിപ്പിക്കുന്നുണ്ട് രാജ്യമെമ്പാടുമുള്ള ഗോത്രവർഗ വിഭാഗങ്ങളുടെ സമ്പന്നവും വൃത്യസ്തവുമായ സംസ്കാരത്തെ ജനങ്ങളിലേയ്ക്കെത്തിക്കുകയാണ് മേളയുടെ ലക്ഷ്യം ഗോത്ര വിഭാഗങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണവും അവരെ മുഖ്യധാരയിലേയ്ക്കെത്തിക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കോവിഡ് വ്യാപനം മൂലം കഴിഞ്ഞവർഷം മേള സംഘടിപ്പിച്ചിരുന്നില്ല

ഭാരത്മാല പര്യോജനയുടെ ഭാഗമായുള്ള കേന്ദ സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ നാലുവരി ഇടനാഴി

ഭുജ്ബലിന്റെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സ്ഥലമെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനമായി

ഭൂമി നഷ്ടപ്പെടുന്ന കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കോവിഡ് വ്യാപനം മൂലം ആഘോഷ പരിപാടികൾ മാറ്റിവയ്ക്കുകയായിരുന്നു

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

മാൽഡ ജില്ലയിലെത്തിയ അദ്ദേഹം സഹപൂർ ജില്ലയിലെ ഗ്രാമീണർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു ക്രിഷക് സഹഭോജ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരത്തിലധികം കർഷകർ പങ്കെടുത്തു

മമത സർക്കാരിന്റെ വർഷത്തെ ഭരണത്തിൽ നിന്നും സംസ്ഥാനത്തെ മോചിപ്പിക്കാനായി ബി ജെ പി യുടെ പരിവർത്തൻ യാത്ര നാദിയ് ജില്ലയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

ഭാരത്രത്ന പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് പൂനെയിൽ സംഘടിപ്പിച്ചു സംഗീത പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഡൊമിനിക് ബെസ്സും ജാക്ക് ലീച്ചുമാണ് ക്രീസിൽ

ടി കെ മോഹൻ ബഗാനും ഒഡീഷയും തമ്മിലുള്ള മത്സരം ഗോവയിൽ തുടങ്ങി